വിക്ഷേപണം വിജയിപ്പിച്ച ശാസ്ത്രജ്ഞരെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു കോൺഗ്രസ് പ്രകടനപത്രിക നാളെ ഡൽഹിയിൽ പുറത്തിറക്കും വയനാട്ടിൽ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധിയുടെ പത്രികാസമർപ്പണം വൃാഴാഴ്ച ലോക്സഭാ തെരഞ്ഞെടുപ്പു കഴിഞ്ഞാൽ സി പി ഐ എം പ്രാദേശിക പാർട്ടിയാകുമെന്ന് കെ പി സി സി പ്രസി ഡണ്ട് മുല്ലപ്പള്ളി രാമചന്ദ്രൻ രാഹുൽഗാന്ധിക്കെതിരെ എൻ ഡി എ സ്ഥാനാർത്ഥിയെ ഇന്ന് പ്രഖ്യാപിക്കുമെന്ന് ബി ജെപി സംസ്ഥാന പ്രസി ഡണ്ട് പി എസ് ശ്രീധരൻപിള്ള വയനാട്ടിൽ സി പി ഐ സ്ഥാനാർത്ഥിയെ പിൻവലിക്കി

കപ്പലുകളിൽ നിന്ന് സന്ദേശം പിടിച്ചെടുക്കുന്ന മാട്ടോ മാറ്റിക് ഐഡന്റിഫിക്കേഷൻ റേഡിയോയുമായി ബന്ധപ്പെട്ട ഓട്ടോമാറ്റിക് ടാക്കറ്റ് റിപ്പീറ്റീംഗ് സംവിധാനങ്ങളും അന്തരീ ക്ഷത്തിലെ അയണോസ്ഫിയറിനെക്കുറിച്ച് പഠിക്കാൻ എ ആർ ഐ എസ് പരീക്ഷണങ്ങൾക്കാണ് എമിസാറ്റ് ലക്ഷ്യമിടുന്ന ത്

ബഹിരാകാശ ചരിത്രത്തിൽ ഇന്ത്യയുടെ കുതിപ്പ് രേഖപ്പെടുത്തുന്ന വിക്ഷേപണ വിജ യമാണ് ഇന്നത്തേതെന്ന് അദ്ദേഹം പറഞ്ഞു

ഒട്ടേറെ ജനകീയ പദ്ധതി കൾ പ്രഖ്യാപിക്കുമെന്നാണ് റിപ്പോർട്ട്

മറ്റന്നാൾ ഉച്ചകഴിഞ്ഞ് കോഴിക്കോട്ടെത്തുന്ന അദ്ദേഹം പാർട്ടി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും രാഹുൽഗാന്ധിയുടെ പ്രചരണവുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങൾക്ക് യു ഡി എഫ് നേതാക്കൾ നാളെ യോഗം ചേരുന്നുണ്ട് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ യോഗത്തിൽ പങ്കെടുക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ സി പി ഐ എം പ്രാദേശിക പാർട്ടിയാകുമെന്ന് കെ പി സി സി പ്രസിഡണ്ട് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു ഫാസിസത്തിനെതിരെ ജനാ ധിപത്യവും മതേതരത്വവും സംരക്ഷിക്കാൻ ആഗ്രഹിക്കു ന്നുവെങ്കിൽ രാഹുലിനെതിരെ എൽ ഡി എഫ് മത്സരിക്കരു

രാഹുൽഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമെന്ന് പ്രഖ്യാപി ച്ചതോടെ മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുകയാണെന്ന് അദ്ദേഹം കുറ്റപ്പെടു ത്തി അമിത്ഷായ്ക്കും കോടിയേരിക്കും ഒരേ സ്വരമാ ണെന്നും സംഘപരിവാറിനൊപ്പമാണ് ഇപ്പോൾ സി പി ഐ എം നിൽക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു എല്ലാ കാലത്തും ബി ജെ പിയെ സഹായിക്കുന്ന സമീപനമാണ് സി പി ഐ എമ്മിന്റേതെന്ന് അദ്ദേഹം പറഞ്ഞു

പെട്രോൾ വിലക്കയറ്റം റഫാൽ ഇടപാട് തുടങ്ങിയ കാര്യ ങ്ങൾ കോൺഗ്രസ് ലോക്സഭയിൽ ഉന്നയിച്ചപ്പോൾ സി പി ഐ എം എം പിമാർ നിശബ്ദരായിരുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു രാഹുൽ ദക്ഷിണേന്ത്യയിൽ മത്സരിക്കുന്നത് വലിയ രാഷ്ട്രീയ സന്ദേശമാണ് നല്കുന്നതെന്നും മുല്ലപ്പള്ളി പറഞ്ഞു

ബി ജെ പിയാണോ ബി ഡി ജെ എസ് ആണോ മത്സരിക്കുക എന്ന കാര്യ ത്തിൽ പാർട്ടി കേന്ദ്രനേതൃത്വം തീരുമാനമെടുക്കുമെന്ന് അദ്ദേഹം കാസർകോട്ട് മാധ്യമപ്രവർത്തകരോട് പറ ഞ്ഞു വയനാട്ടിൽ ശക്തമായ മത്സരം കാഴ്ചവെക്കു മെന്നും ശ്രീധരൻപിള്ള അറിയിച്ചു മത്സരം ബി ജെ പിക്ക് എതിരാണോ സി പി ഐ എമ്മിന് എതിരാണോ എന്ന് രാഹുൽ വ്യക്തമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു

മണ്ഡലത്തിൽ രാഹുൽഗാ ന്ധിയെ തോൽപ്പിക്കാൻ എല്ലാ ശ്രമവും നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ ഇട തുമുന്നണിയ്ക്ക് ആശങ്കയൊന്നുമില്ല ബി ജെ പി ശക്തമായ കർണ്ണാടകത്തിലോ മറ്റേതെങ്കിലും സംസ്ഥാനത്തോ ആയി രുന്നു രാഹുൽഗാന്ധി മത്സരിക്കേണ്ടിയിരുന്നത് ഇപ്പോഴത്തെ മത്സരം ബി ജെ പി വിരുദ്ധ സഖ്യത്തിന് ഒരു പ്രയോജനവും ചെയ്യില്ലെന്നും സുധാകർ റെഡി അഭിപ്രായപ്പെട്ടു സി പി ഐ സ്ഥാനാർത്ഥിക്കെതിരെ ബി ജെ പി വിരുദ്ധ കൂട്ടുകെട്ടിലെ പ്രബലകക്ഷിയുടെ ദേശീയ പ്രസിഡണ്ടു തന്നെ മത്സരിക്കുന്നത് ഗുണകരമല്ലെന്നും റെഡ്ഡി പറഞ്ഞു മറ്റ് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നതുപോലെ യല്ല സി പി ഐ യ്ക്കെതിരെ രാഹുൽഗാന്ധി മത്സരിക്കുന്ന തെന്നും സുധാകർറെഡ്ഡി വിലയിരുത്തി കോൺഗ്രസിനും ബി ജെ പിക്കും ഒരേ നയമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കുറ്റപ്പെടുത്തി കേന്ദ്ര ത്തിൽ ഗവൺമെന്റിന്റെ മുഖം മാറിയതുകൊണ്ടുമാത്രം കാര്യമില്ലെന്ന് അദ്ദേഹം പറഞ്ഞു ബദൽ നയത്തോടെ ഗവൺമെന്റ് മതേ തര അധികാരത്തിൽ വരണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കോലഞ്ചേരിയിൽ എൽ ഡി എഫ് പ്രചരണയോഗത്തിൽ സംസാരിക്കുക യായിരുന്നു അദ്ദേഹം ഇടതു പക്ഷത്തിനെതിരെ രാഹുൽഗാന്ധി മത്സരിക്കുമ്പോൾ അത് നല്കുന്ന സന്ദേശമെന്താണെന്ന് അദ്ദേഹം ആവർത്തിച്ച് ചോദിച്ചു ഇടതുപക്ഷമാണ് മുഖ്യശത്രുവെന്ന സന്ദേശമാണ് അത് നല്കുന്നതെന്നും അദ്ദേഹം വിശദീകരിച്ചു

അനുഭവത്തിൽ നിന്ന് കോൺഗ്രസ് പാഠം പഠിക്കുന്നില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ബി ജെ പിക്കെതിരായ് മതനിരപേക്ഷ ഐക്യത്തെ തകർക്കാ നാണ് കോൺഗ്രസ് ശ്രമിക്കു ന്ന തെന്ന് സി പി ഐ എം പൊളിറ്റ്ബ്യൂറോ അംഗം എസ് രാമച ന്ദ്രൻപിള്ള ആരോപിച്ചു മൃദുഹിന്ദുത്വനിലപാടാണ് കോൺഗ്രസിന്റേതെന്നും അദ്ദേഹം കാസർകോട്ട് പറഞ്ഞു ബി ജെ പിയുടെ ഭൂരിപക്ഷ വർഗ്ഗീയ നിലപാ ടുകൾ തന്നെയാണ് കോൺഗ്രസ് തുടരുന്നതെന്നും എസ് ആർ പി കുറ്റപ്പെടുത്തി രണ്ട് മണ്ഡലങ്ങളിൽ ജയിച്ചാലും രാഹുൽഗാന്ധി വയനാട് മണ്ഡലം നിലനിർത്തണമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് ആര്യാടൻ മുഹമ്മദ് അഭിപ്രായ പ്പെട്ടു പ്രവർത്തകരുടെ വികാരം ഇതാണെന്ന് അദ്ദേഹം നിലമ്പൂരിൽ പറഞ്ഞു കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കേണ്ടത് സി പി ഐ എമ്മും ബി ജെപിയുമ ല്ലെന്നും ആര്യാടൻ പറഞ്ഞു

ആന്ധ്രപ്രദേശ് മുഖ്യ മന്ത്രി ചന്ദ്രബാബുനായിഡു കോൺഗ്രസ് ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഉൾപ്പെടെ നേതാ ക്കളാണ് വിവിപാറ്റ് സ്ലിപ്പുകൾ എണ്ണണമെന്ന ആവശ്യ വുമായി സുപ്രീംകോടതിയെ സമീപിച്ചത് വിവിപാറ്റ് സ്ലിപ്പുകൾ എണ്ണുക പ്രായോഗികമല്ലെന്ന് കഴിഞ്ഞ വെള്ളി യാഴ്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയെ അറിയി ച്ചിരുന്നു ഇത് ഫലപ്രഖ്യാപനത്തിന് കാലതാമസം വരു ത്തുമെന്നും കമ്മീഷൻ അറിയിച്ചു

എഫ് സ്ഥാനാർത്ഥി എൻ

പ്രേമചന്ദ്രൻ ഇന്ന് ഉച്ചയ്ക്ക് നാമനിർദ്ദേശപത്രിക സമർപ്പിക്കും

ഡി എഫി ന്റെ മണ്ഡലപര്യടനത്തിന് ഇന്ന് തുടക്കമാകും

എഫ് സ്ഥാനാർഥിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി സിപിഐ എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഇന്ന് കൊല്ലത്തെത്തും ലലലലല ഡൽഹിയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ആം ആദ്മി പാർട്ടിയുമായി സഖ്യമുണ്ടാക്കാൻ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധി വിസമ്മതിച്ചതായി ആം ആദ്മി പാർട്ടി അധ്യക്ഷനും ഡൽഹി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാൾ അറിയിച്ചു ഈ ആവശ്യവുമായി രാഹുലിനെ താൻ ഈയിടെ കണ്ടിരുന്നുവെന്നും കൂട്ടു കെട്ടുണ്ടാക്കണമെന്ന ആവശ്യം അദ്ദേഹം നിരസിക്കു കയാരുന്നുവെന്നും കെജ്രിവാൾ വിശാഖപട്ടണത്ത് വാർത്താലേഖകരോട് പറഞ്ഞു ആർ എം പി ഐ നേതാവ് കെ കെ രമയ്ക്കെതിരെ കേസെടുക്കാൻ വടകര ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജി സ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടു വടകരയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പി ജയരാജനെതിരെ കൊലയാളി പരാമർശം നടത്തിയതിനാണ് കേസ് കോടിയേരി ബാല കൃഷ്ണൻ

പരാതിയിലാണ് നടപടി

കുട്ടികളുടെ നഗ്നചിത്രങ്ങൾ ഉപ യോഗിക്കുന്നവരെ പിടികൂടാൻ ഓപ്പറേഷൻ പീ ഹണ്ട് എന്ന പേരിൽ എസ് പിമാരുടെ നേതൃത്പത്തിൽ നട ത്തിയ പരിശോധനയിലാണ് ഇവർ പിടിയിലായത്

ജമ്മുകശ്മീരിലെ പുൽവാമ ജില്ലയിൽ സുരക്ഷാസേന കനത്ത ഏറ്റുമുട്ടലിൽ നാല് ഭീകരരെ വധിച്ചു ജില്ല യിലെ ലാസിപ്പോറ ഗ്രാമത്തിൽ ഭീകരർ എത്തിയിട്ടു ണ്ടെന്ന റിപ്പോർട്ടിനെ തുടർന്ന് രാഷ്ട്രീയ റൈഫിൾസി ന്റെയും സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പിന്റെയും പൊലീ സിന്റെയും സി ആർ പി എഫിന്റെയും സംയുക്ത സംഘം പ്രദേശം വളഞ്ഞ് പരിശോധിക്കുന്നതിനിടെ യാണ് ഏറ്റുമുട്ടൽ ഉണ്ടായത് പുറത്തേക്ക് പോകുന്ന എല്ലാ വഴികളും അടച്ചശേഷം വീടുവീടാന്തരം കയറി യിറങ്ങിയാണ് നടത്തിയത് കൊല്ലപ്പെട്ടവരിൽ നിന്ന് വൻതോതിൽ ആയുധങ്ങളും വെടിക്കോപ്പുകളും കണ്ടെടുത്തതായി സൈനികകേന്ദ്രങ്ങൾ അറിയിച്ചു ശ്രീലങ്കൻ നാവികസേനാ മേധാവി വൈസ് അഡ്മി റൽ പിയാൽ ഡിസിൽവ ഏഴിമല നാവിക അക്കാദമി സന്ദർശിച്ചു

ഏഴിമല നാവിക അക്കാദമി മേധാവി വൈസ് അഡ്മിറൽ ആർ വി പാണ്ഡിറ്റ് ഡിസിൽവയെ സ്വീകരിച്ചു അഖിലേന്ത്യാ വോളി ഫെസ്റ്റിന് നാളെ കണ്ണൂർ കേള കത്ത് തുടക്കമാകും കേളകം ഫ്ളഡ്ലിറ്റ് സ്റ്റേഡിയ ത്തിലെ മത്സരത്തിൽ രാജ്യത്തെ എട്ട് പ്രമുഖ ടീമുകൾ പങ്കെടുക്കും ആദ്യ ദി വസം ഇന്ത്യൻ എയർഫോഴ്സ് ഡൽഹി ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ചെന്നൈയുമായി ഏറ്റുമുട്ടും

സംസ്ഥാനത്ത് കേന്ദ്രീയവിദ്യാലയങ്ങളിൽ പുതിയ അധ്യയന വർഷം ഇന്ന് ആരംഭിച്ചു കഠിനമായ ചൂട് കണക്കിലെടുത്ത് ക്ലാസുകൾ പാടില്ലെന്ന് ഗവൺമെന്റ് ഉത്തരവ് നിലനിൽക്കെയാണ് അധ്യയനവർഷത്തിന് തുടക്കമായത് സി ബി എസ് ഇ ഐ സി എസ് ഇ വിദ്യാലയങ്ങൾക്ക് ഉത്തരവ് ബാധകമാണെന്ന് ഗവൺമെന്റ് വ്യക്തമാക്കിയിരുന്നു